ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് പി

ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ സുരക്ഷാ ന് സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടു

ആർ

പ്രതിരോധം കല സാംസ്കാരികം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണത്തിനാണ് തീരുമാനമായത്

വാണിജ്യ നിക്ഷേപം വികസന സ്ഥ്ഹകരണം കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ പ്രതിരോധം പു്നരുപയോഗിക്കാവുന്ന ഊർജ്ജം എന്നീമേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇരുവരും ചർച്ച ചെയ്തു ഇന്ത്യയും സാംബിയയും തമ്മിലുളള പ്രതിരോധമേഖലയിലെ മെച്ചപ്പെട്ട സഹകരണത്തിന് ഈ കരാറിലൂടെ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സാംബിയൻ സൈന്യത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ കര വ്യോമ സേനാ പരിശീലകരെ നിയോഗിക്കും ആരോഗ്യ സംരക്ഷണം ടൂറിസം കൃഷി ഭക്ഷ്യസംസ്കരണം ഖനനം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടേയും പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫലവത്തായ ചർച്ചകൾ നടത്തിയതായി സാംബിയൻ പ്രസിഡന്റ് പറഞ്ഞു വർഷങ്ങളായുളള ഇന്ത്യയുടെ പിന്തുണയ്ക്ക് സാംബിയൻ ജനത നന്ദിയുളളവരായിരിക്കുമെന്നും കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ സാംബിയയിൽ നിക്ഷേപം നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ത്രിദിന സന്ദർശനത്തിനായി ശ്രീ ലുൻഗു ഇന്നലെയാണ് ന്യൂഡൽഹിയിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

എക്സ് മീഡിയ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വെള്ളിയാഴ്ച പരിഗണിക്കും രാവിലെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് എം

രമണ ഉൾപ്പെടുന്ന ബെഞ്ച് കേസ് ചീഫ് ജസ്റ്റിസിന് അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു

ചിദംബരത്തിന്റെ മകനും ലോക്സഭ എം

യുമായ കാർത്തി ചിദംബരം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി

ടി റിട്ടേൺസിൽ കാണിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് കേസ് പരിഗണിക്കുന്ന കോടതിയിൽ നിന്നും ജനപ്രതിനിധികളുടെ കേസുകൾ കേൾക്കുന്ന കോടതിയിലേക്ക് തന്റെ കേസ് മാറ്റിയതിനെതിരെയും ശ്രീ കാർത്തി ചിദംബരം ഹർജി നൽകിയിരുന്നു

ബാരാമുള്ള നിവാസിയായ മൊമീൻ ഗൊജ്റിയാണ് കൊല്ലപ്പെട്ട തീവ്രവാദിയെന്ന് പൊലീസ് പറഞ്ഞു ജമ്മു കാശ്മീർ പൊലീസ് ഉദ്യോഗസ്ഥൻ ബിലാൽ അഹമ്മദ് വെടിവയ്പ്പിനിടെ വീരമൃത്യു വരിച്ചു ഗാനി ഹമാം മേഖലയിൽ തീവ്രവാദികൾ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് സ്ഥലത്ത് നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്

രജൌരി ജില്ലയിലെ സുന്ദർബ്നീ മേഖലയിൽ യാതൊരു പ്രകോപനവും കൂടാതെ പാക് സേനാ വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടത്തിയെന്ന് പ്രതിരോധവക്താവ് അറിയിച്ചു

ഇന്ത്യൻ സേനയിൽ ജീപ്പൂഫർനിയോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

കാശ്മീരിലെയും ശ്രീനഗറിലെ വിവിധയിടങ്ങളിലെയും നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ മാറ്റിയെങ്കിലും ക്രമസമാധാന പാലനം കണക്കിലെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ശ്രീനഗർ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ നിയന്ത്രണം തുടരുകയാണ്

ജി

ജി

ഉത്തര കാശ്മീരിലെ ബാരാമുള്ള ഹന്ദ്വാരാ സൊപ്പാറ മേഖലകളിലെ പൊലീസ് ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ സ്ഥിതിയെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു ഡി ജി പ ദിൽബാഗ് സിംഗ്

ആർ

ബി ഐ

ചാനൽ മുൻ സി ഇ

വിക്രമാദിത്യ ചന്ദ്രക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്

മറ്റൊരു കേസിൽ പ്രതികളായ പ്രണോയ് റോയിയും രാധികാ റോയിയും വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തി ഈമാസം ഒമ്പതിന് കോടതി ഉത്തരവിട്ടിരുന്നു

സേനാ ആസ്ഥാനത്ത് നടത്തിയ വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം നൽകിയത്

മനുഷ്യാവകാശ വിഭാഗവും പ്രത്യേകമായി രൂപം ് നൂൽകാൻ തീരുമാനമായിട്ടു് മനുഷ്യാവകാശം സംബന്ധിച്ച ക്ട്രിശ്നങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിനാണ് ഈ വിഭാഗ്യം രൂപ്പീകരിക്കുന്നത്

നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറി ശങ്കർദാസ് ബൈരേഗിയും നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ മഞ്ജീത് സിംഗ് പുരിയും ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ നീലാംബർ ആചാര്യയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രി കെ

ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷന്റെ അഞ്ചാമത് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് നേപ്പാൾ വിദേശകാര്യമന്ത്രി പ്രദീപ് കുമാർ ഗ്യാവാലിയും യോഗത്തിൽ സംബന്ധിക്കുന്നു

ഐ ആശുപത്രികൾ ആരംഭിക്കാൻ ഗവൺമെന്റ് പദ്ധതി ഇടുകയാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗംഗ്വാർ പറഞ്ഞു

ഹൈദരാബാദിൽ ഇ

ഐ മെഡിക്കൽ കോളേജും ആശുപത്രിയും രാജ്യത്തിന് സമർപ്പിച്ചുകൊ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്ക് പ്രതിമാസ പെൻഷൻ ലഭ്യമാക്കാനുളള നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

സ്കൂൾ മേധാവികളുടേയും അധ്യാപികരുടെയും സമഗ്ര പുരോഗതി ലക്ഷ്യമിടുന്ന പരിശീലന്ന് പരിപാടിയാണ് നിഷ്ത

കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന അധ്യാപകർക്ക് സമൂഹത്തിൽ ശ്രേഷ്ഠമായ സ്ഥാനമാണുള്ളതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യവെ കേന്ദ്ര മന്ത്രി അഭിപ്രായപ്പെട്ടു

പൈലറ്റും സഹപൈലറ്റും ഒരു പ്രദേശവാസിയുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഉത്തരാഖണ്ഡ് ഡി ജി അറിയിച്ചു

വൈദ്യുത കമ്പിയിൽ തട്ടിയതാണ് ഹെലികോപ്റ്റർ തകരാൻ കാരണം